ഐക്യരാഷ്ട്ര സഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിൽ യോഗത്തിന്റെ ഉന്നതതല സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി അഭിസംബോധന ചെയ്യും

ന്യൂയോർക്കിൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിർചൽ അഭിസംബോധനയാവും പ്രധാനമന്ത്രി നടത്തുക

എൻ സുരക്ഷാ സമിതിയിൽ ഇന്ത്യ താത്കാലിക അംഗത്വം നേടിയതിനു ശേഷം ഐകൃരാഷ്ട്ര സഭയിൽ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ അഭിസംബോധനയാണിത്

എ

രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്